ഗവൺമെന്റിനെ സഹായിക്കാൻ വിദഗ്ധസമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി

ഇവർ മാഹി ജനറൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്നു

രുര മാഹി സ്വദേശി സഞ്ചരിച്ച സ്ഥലങ്ങളുടെ വിവരങ്ങളടങ്ങിയ റൂട്ട് മാപ്പ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം പ്രസിദ്ധീകരിച്ചു

ഈ വിമാനത്തിൽ യാത്ര ചെയ്തവർ ജില്ലാ കൺട്രോൾ റൂമുമായി ഉടൻ ബന്ധപ്പെടണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഇന്നുമുതൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ സന്ദർശകരെ വിലക്കി

കൂടുതൽ വിവരങ്ങളുമായി ഹബീബ് റഹ്മാൻ വോയിസ് പൊതുജനങ്ങൾക്കും ആരോഗ്യപ്രവർത്തകർക്കും വിവരങ്ങൾ കൈമാറുന്നതിനും അവരെ ബോധവത്ക്കരിക്കുന്നതിനും ഇന്ററാക്ടീവ് വെബ് പോർട്ടൽ തുടങ്ങും

പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ സേവനവും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും പൊതുജനങ്ങൾക്ക് രോഗപ്രതിരോധം ചികിത്സ എന്നിവ സംബന്ധിച്ച് ഡോക്ടർമാരിൽ നിന്ന് ഉപദേശം ലഭിക്കുന്നതിന് ഡിജിറ്റൽ കൺസൾട്ടേഷൻ ആരംഭിക്കാവുന്നതാണ്

അറുപതിനു മുകളിൽ പ്രായമുള്ളവരിലും ശ്വാസകോശ ഹൃദയ രോഗങ്ങൾ ഉള്ളവരിലും രോഗബാധ മാരകമായിരിക്കും എന്നതാണ് പൊതുവെ അനുഭവം അതുകൊണ്ട് പ്രായമേറിയവരെയും മറ്റ് രോഗങ്ങൾ ബാധിച്ചവരെയും പ്രത്യേകം സംരക്ഷിക്കുന്നതിന് ശ്രദ്ധ ചെലുത്തും സംസ്ഥാനത്തെ പാലിയേറ്റീവ് സെന്ററുകളുടെയും പാലിയേറ്റീവ് വളണ്ടിയർമാരുടെയും സേവനം ഇതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വായ്പയെടുത്ത സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും തിരിച്ചടവിന് കാലാവധി ദീർഘിപ്പിക്കുക റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം അനുസരിച്ച് വായ്പകൾ പുനഃക്രമീകരിക്കുക പലിശയിൽ അനുഭാവപൂർവ്വമായ ഇളവുകൾ നൽകുക പുതിയ വായ്പകൾക്ക് കൂടുതൽ ഇളവുകൾ അനുവദിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ യോഗത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ടുവെച്ചു

ആരോഗ്യത്തെ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തും സാമ്പത്തിക സ്ഥിതിയെ കൂടി ദോഷകരമായി ബാധിച്ച ഈ ആഗോള വെല്ലുവിളി നേരിടാൻ യോജിച്ച ശ്രമം വേണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു

മൂന്ന് പേരാണ് രാജ്യത്ത് കൊറോണ ബാധിച്ച് മരിച്ചത്

ന്യൂഡൽഹിയിൽ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ്ഗൌബയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം

കൊറോണ വൈറസ് ഭീഷണി മൂലം ജനങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത സാഹചര്യമാണുള്ളതെന്നും ഈ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ വിഹിതം വർധിപ്പിച്ച് സൌജന്യ റേഷൻ നൽകാൻ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് എം

ഇവരുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താനുള്ള നടപടികൾ ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ്

ദേദ ആലപ്പുഴ ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ നിന്നും സാമ്പിളുകളുടെ പരിശോധനാഫലമെത്തിയപ്പോൾ മുഴുവൻ ഫലവും നെഗറ്റീവ്

ഏപ്രിൽ ഒന്നു വരെ ആരാധനാ സമയം കുറച്ച് ചടങ്ങുകൾ മാത്രമായി ഒതുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തെലങ്കാനയിൽ നിന്നും അവധിക്ക് വന്ന ഏഴ് നഴ്സിംഗ് വിദ്യാർഥിനികളെയും കൽബുർഗിയിൽ നിന്നു വന്ന മൂന്നു വിദ്യാർഥികളെയും സുരക്ഷിതമായി വീടുകളിൽ നിരീക്ഷിക്കാൻ ക്രമീകരണം ഏർപ്പെടുത്തി

ജില്ലാതല സംഘവും അതിന് കീഴിലായി ഒമ്പത് ഉപസംഘങ്ങളുമാണ് രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക

ഇതിനു പുറമെ ഇതുമായി ബന്ധപ്പെട്ട ഏതു സാഹചര്യവും നേരിടാൻ സന്നദ്ധമാണെന്ന് നാവികസേന അറിയിച്ചു

ടോക്കിയോ ഒളിമ്പിക്സ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നടത്താൻ ഐ ഒ സി പ്രതിജ്ഞാബദ്ധമാണെന്നും കായികതാരങ്ങൾ ഇതിനായി പരിശീലനത്തിൽ മുഴുകണമെന്നും പ്രസ്താവനയിൽ പറയുന്നു

ദരദ പകർച്ചവ്യാധികൾ പടരാൻ സാധ്യത കണക്കിലെടുത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഹോമിയോ മരുന്നുകൾ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രികളിലും ഡിസ്പൻസറികളിലും ലഭ്യമാണെന്ന് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു